ചൊവ്വാഴ്ച വൈകിട്ട് പ്രചാരണം അവസാനിക്കും

ഭരണഘടനാ ശില്പി ബി

കേന്ദ്ര ഗവൺമെന്റ് പൊതു അവധി പ്രഖ്യാപിച്ചു ഇന്നലെ പുലർച്ചെ അന്തരിച്ച മുൻ അഡീഷണൽ ചീഫ് സെക്ര ട്ടറി ഡോ

ബാബുപോളിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് പെരു മ്പാവൂർ സെന്റ് മേരീസ് യാക്കോബായ പള്ളിയിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും കനത്ത ചൂടുണ്ടാകുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് ഇന്ന് ഓശാന ഞായർ പള്ളികളിൽ കുരുത്തോല വിതരണവും പ്രദക്ഷിണവും നടക്കും

ദിനേശ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട പ്രചാരണം അവസാനഘട്ടത്തിലേക്ക് നീങ്ങുന്നു ചൊവ്വാഴ്ച വൈകിട്ട് പരസ്യ പ്രചാരണം സമാപിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര മന്ത്രിമാർ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ പാർട്ടി ദേശീയ നേതാക്കൾ തുടങ്ങിയവർ വിവിധ സ്ഥലങ്ങളിൽ പൊതുറാലികളിൽ സംബന്ധിച്ചു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ കർണ്ണാടക തുമിഴ്നാട്ട് എന്നിവിടങ്ങളിൽ റാലികളിൽ പങ്കെടുത്തു രാഹുൽഗാന്ധി കർണ്ണാടകയിലെ കോലാർ ചിത്രദുർഗ്ഗ എന്നിവിടങ്ങളിൽ റാലികളിൽ സംബന്ധി ച്ചു

ജെ പി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ ഉത്തർപ്രദേ ശിലെ രണ്ടിടങ്ങളിൽ വിജയ് സങ്കല്പ് റാലികളിൽ പങ്കെടു ത്തു

നേരത്തെ പ്രഖ്യാപിച്ച മൊറട്ടോറിയം ഒക്ടോബർ വരെ പ്രാബലൃത്തിലു ണ്ട് വോട്ടെടുപ്പിന് ശേഷം പെരുമാറ്റച്ചട്ടത്തിൽ ഇളവ് വരുന്ന തോടെ ഗവൺമെന്റിന് മൊറട്ടോറിയം ഉത്തരവ് ഡിസംബർ വരെ നീട്ടാനാവുമെന്നും ടിക്കാറാം മീണ പറഞ്ഞു പെരുമാറ്റ ച്ചട്ടം നിലവിലിരിക്കുമ്പോൾ ഇപ്പോൾ അടിയന്തിരമായി തീയതി നീട്ടുന്നതിന്റെ കാരണം വ്യക്തമാക്കാൻ ഗവൺമെന്റിന് കഴി ഞ്ഞിട്ടില്ലെന്നാണ് വിലയിരുത്തൽ ഇന്ത്യയെ മതാധിഷ്ഠിതമാക്കണമെന്ന ആർ എസ് എസ്സിന്റെ ആശയമാണ് ബി

പി നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്ന് മുഖ്യ മന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി ഇത് രാജ്യത്തെ ശിഥി ലമാക്കും വർഗ്ഗീയതയോട് സന്ധി ചെയ്യുന്ന കോൺഗ്രസ് മാറി ചിന്തിക്കാൻ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അടൂ രിൽ എൽ ഡി എഫ് പ്രചാരണ യോഗ്ത്തിൽ സംസാരിക്കുക യായിരുന്നു മുഖ്യമന്ത്രി

എം സുധീരൻ കുറ്റപ്പെടുത്തി

എമ്മിനെതിരെ അദ്ദേഹം പ്രതികരിക്കാത്തത് രാഷ്ട്രീയ ഔന്നത്യം കൊണ്ടാണെന്നും സുധീരൻ വയനാട് കാവുമന്ദത്ത് അഭിപ്രായപ്പെട്ടു കാർഷികോൽപ്പന്നങ്ങൾക്ക് വില കിട്ടാതെ കടക്കെ ണിയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്ന കർഷകരുടെ എണ്ണം കൂടുകയാണെന്ന് ഭരണപരിഷ്കാര സമിതി ചെയർമാൻ വി എസ് അച്യുതാനന്ദൻ കോഴിക്കോട്ട് എൽഡിഎഫ് പൊതുയോഗത്തിൽ പറഞ്ഞു കർഷകർക്ക് ബി

കോൺഗ്രസിന്റെ അഴിമതിയും സാമ്പത്തിക നയങ്ങളുമാണ് ബി

പിയെ അധികാര ത്തിലെത്തിച്ചതെന്നും അച്യുതാനന്ദൻ ആരോപിച്ചു വാഗ്ദാനം നൽകുന്ന ഗവൺമെന്റല്ല നടപ്പാക്കുന്ന ഗവർണ്മെന്റാണ് ബി ജെ പി യുടേതെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു പാലക്കാട്ട് എൻ

എ തെരെഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കു കയായിരുന്നു അദ്ദേഹം

എഫും യു

എഫും സംസ്ഥാനത്തെ വികസന മുര ടിപ്പിലേക്ക് നയിച്ചെന്ന് രാജ്നാഥ് സിംഗ് കുറ്റപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോഴിക്കോട്ടെ വിജയ് സങ്കല്പ് റാലി പരാജയപ്പെടുത്താൻ ജില്ലാ കലക്ടർ ശ്രമി ച്ചെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ടി

റാലിക്കെത്തിയവർക്ക് കുടി വെള്ളം നൽകാനോ കുട ഉപയോഗിക്കാനോ അനുവദിച്ചി ല്ലെന്നും സ്ഥകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് സ്ഥാപിച്ച ബോർഡുകളും കൊടിതോരണങ്ങളും അഴിപ്പിച്ചെന്നും അദ്ദേഹം പറഞ്ഞു കലക്ടർ രാഷ്ട്രീയ പക്ഷപാതം കാണി ക്കുകയാണെന്നും അദ്ദേഹത്തെ വരണാധികാരി സ്ഥാനത്തു നിന്ന് മാറ്റണമെന്നും ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു വയനാട് മലപ്പുറം ജില്ലകളിലെ വനമേഖലകളിൽ തണ്ടർബോൾട്ടും പൊലീസും പരിശോധന ശക്തമാക്കി

ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് മാവോയിസ്റ്റ് ഭീഷണി ഉണ്ടെന്ന ഇന്റലി ജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ബിജെപിക്കെതിരെ വിശാല പ്രതിപക്ഷ ഐക്യനിര പടുത്തുയർത്താൻ കോൺഗ്രസിന് കഴിയേണ്ട തായിരു ന്നുവെന്ന് ഫോർവേഡ് ബ്ലോക്ക് ദേശ്യീയ സെക്രട്ടറി ജി

ഒരു ബ്ലോക്കായി നിന്ന് സമ്മർദ്ദംം ചെലുത്താനാകാത്തതുകൊണ്ടാണ് ദേശീയതലത്തിൽ ഇടതുപക്ഷ കൂട്ടായ്മ ഇല്ലാതാ യതെന്ന് ദേവരാജൻ കുറ്റപ്പെ ടുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോ ണിക് വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് കണ്ണൂർ ജില്ല യിൽ ആരംഭിച്ചു ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും വിത രണ കേന്ദ്രങ്ങളിലാണ് കമ്മീഷനിംഗ് നടക്കുന്നത്

ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടിയ്ക്ക് നിയോഗിച്ച ജീവനക്കാരുടെ അവസാനഘട്ട പരിശീലനം ചൊവ്വാഴ്ച നടത്തുമെന്ന് കണ്ണൂർ ജില്ലാ കലക്ടർ അറിയിച്ചു പങ്കെടുക്കാത്തവർക്കെതിരെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം നടപടിയെടുക്കുമെന്ന് കലക്ടർ മുന്നറിയിപ്പ് നൽകി ഭരണഘടനാ ശില്പി ബാബാ സാഹേബ് ബി

മുംബൈയിലെ ചൈത്യ ഭൂമി യിലും നാഗ്പൂരിലെ ദീക്ഷാ ഭൂമിയിലും ജന്മദിന അനുസ്മ രണ പരിപാടികൾ രാവിലെ തുടങ്ങും പാർലമെന്റിലെ അംബേ ദ്കർ പ്രതിമക്ക് മുന്നിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ പുഷ്പാഞ്ജലി അർപ്പിക്കും അംബേദ്കർ ജയന്തി പ്രമാണിച്ച് എല്ലാ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും വൃവസായ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നലെ പുലർച്ചെ അന്തരിച്ച മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനുമായ ഡോ

ബാബുപോ ളിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് പെരുമ്പാവൂർ കുറുപ്പം പടി സെന്റ് മേരീസ് യാക്കോബായ കത്തീഡ്രലിൽ ഔദ്യോ ഗിക ബഹുമതികളോടെ നടത്തും

ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്തുനിന്ന് മൃതദേഹം പെരു മ്പാവൂരിലേക്ക് കൊണ്ടുവരും ഉച്ചയോടെ കുറുപ്പംപടിയിൽ പൊതുദർശനത്തിന് വെച്ചശേഷമായിരിക്കും വൈകിട്ട് സംസ്കാരം

ബാബുപോളിന്റെ വിയോഗത്തിൽ ഇടുക്കി കലക്ടറേറ്റിൽ അനുശോചന യോഗം ചേർന്നു ഇടുക്കി ജില്ലാ രൂപീകരണത്തിലും ജലവൈദ്യുതി പദ്ധതിയുടെയും ഭരണസിരാകേന്ദ്രത്തിന്റെ നിർമ്മാണ് ം എന്നിവക്ക് നേതൃത്വം നിർണായക പങ്കുവഹിച്ചതും നൽകിയതും അദ്ദേഹമായിരുന്നുവെന്ന് യോഗം അനുസ്മരിച്ചു ജനാധിപത്യ കേരളാ കോൺഗ്രസ് ഇടുക്കി ജില്ലാ നേതൃയോഗവും പ്രബാബു പോളിന്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും കടുത്ത ചൂട് തുടരു മെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇന്നും വയ നാട് ഒഴികെ ജില്ലകളിൽ പകൽ താപനില നാല് ഡിഗ്രി വരെ ഉയരും നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ മുൻക രുതൽ എടുക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും മുന്നറിയിപ്പ് നൽകി സൂര്യാഘാത സൂര്യാതപ സാധ്യത മിക്ക ജില്ലകളിലും നിലനിൽക്കുകയാ

ഇന്ന് ഓശാന ഞായർ

ഇതിന്റെ ഭാഗമായി ഇന്ന് കുരുത്തോല വിതരണവും പ്രദക്ഷിണവും നടക്കും ഒരാ ഴ്ചത്തെ വിശുദ്ധ വാരാചരണത്തിനും ഇന്ന് തുടക്കമാകും ശബരിമലയിൽ ഇന്നും വൻ ഭക്തജനത്തിരക്ക്

വിഷു ഉത്സ വമായ നാളെ പുലർച്ചെ നാലു മുതൽ സന്നിധാനത്ത് ഭക്തർക്കായി വിഷുക്കണി ഒരുക്കും കണി കണ്ട് അയ്യപ്പദർശനം നടത്തുന്ന ഭക്തർക്ക് തന്ത്രിയും മേൽശാന്തിയും വിഷുക്കൈ നീട്ടം സമ്മാനിക്കും

പുലർച്ചെ കണി കാണാനെ ത്തുന്നവർക്ക് വുഷുക്കൈനീട്ടവും സമ്മാനിക്കും

അരക്കിലോ കഞ്ചാവുമായി വയനാട് മാനന്തവാടിയിൽ യുവാവ് എക്സൈസിന്റെ പിടിയിലായി

ഷറഫുദ്ദീനെയാണ് അറസ്റ്റ് ചെയ്തത് കൊല്ലം സിവിൽ സ്റ്റേഷൻ പരിസരം മാലിന്യ മുക്തമാക്കുന്ന പ്രതിദിനം പ്രതിരോധം ശുചീകരണ പരിപാടിക്ക് തുടക്കമായി ജില്ലാ ശുചിത്വമിഷന്റെ ആഭിമുഖൃത്തിൽ ജീവനക്കാരുടെ പങ്കാളിത്തതോടെ കലക് ട്രേറ്റ് പരിസരം ശുചീകരിക്കുന്ന പ്രവർത്തനം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി എസ് എച്ച് പഞ്ചാപകേശൻ ഉദ്ഘാടനം ചെയ്തു

വയനാട്ടിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ പ്രകൃതിദത്ത ശുദ്ധജലസ്രോതസ്സുകൾ സംരക്ഷിച്ച് ശുദ്ധജലം ഉറപ്പാക്കുന്ന പദ്ധതിക്ക് വയനാട് സോഷ്യൽ സർപ്പീസ് സൊസൈറ്റി തുടക്കം കുറിച്ചു വയനാട്ടിലെ തലക്കുളങ്ങൾ കേണികൾ എന്നിവ സംരക്ഷിച്ച് കുറഞ്ഞ ചെലവിൽ കുടി വെള്ളം ലഭ്യമാക്കുന്ന പരിപാടി കാരിത്താസ് ഇന്ത്യയുമായി സഹകരിച്ചാണ് നടപ്പാക്കുന്നത് സിസ്റ്റർ ലൂസി കളപ്പുരയെ ഒറ്റപ്പെടുത്താനും ബിഷപ് ഫ്രാങ്കോ മുളയ്ക്കലിനെ രക്ഷിക്കാനും നട്ടക്കുന്ന നീക്ക ങ്ങൾക്കെതിരെ മാനന്തവാടിയിൽ ഒരു വിഭാഗം വിശ്വാസികൾ ഐക്യദാർഢ്യസംഗമം നടത്തി പ്രൊഫ കുസുമം ജോസഫ് ഉദ്ഘാടനം ചെയ്തു

എൽ ക്രിക്കറ്റിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേ ഴ്സിനും രാജസ്ഥാൻ റോയൽസിനും വിജയം സീസണിലെ തുടർച്ചയായ ആറ് തോൽവികൾക്ക് ശേഷമാണ് ബാംഗ്ലൂർ ഇന്നലെ കിങ്സ് ഇലവൻ പഞ്ചാബിനെ എട്ട് വിക്കറ്റിന് തോൽപ്പി ച്ചത് രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ നാല് വിക്കറ്റിന് പരാജയപ്പെടുത്തി